വാർത്തകൾ വിശദമായി ജമ്മുകശ്മീരിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമായ ജൻ ആരോഗ്യ യോജന ജെയ് സെഹത് പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുടക്കം കുറിക്കും

എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുകയും ഇതിൽ ഗുണനിലവാരവും ചെലവും സാധ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം കേന്ദ്രമന്ത്രി അമിത്ഷാ അടക്കം പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും രുര കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണത്തിന് അർഹരായ മുൻഗണനാ വിഭാഗങ്ങളെ തീരുമാനിക്കാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് വിപുലമായ ശ്രമങ്ങൾ നടത്തിയതായി കേന്ദ്രമന്ത്രി ഡോ

വേഗത്തിലും തുല്ല്യമായും വാക്സിൻ എല്ലാവരിലുമെത്തിക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

ഹർഷവർദ്ധൻ വിശദീകരിച്ചു

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധ

രും ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം എട്ട് കോടി കവിഞ്ഞു

അഞ്ച് കോടി അറുപത്തി നാലര ലക്ഷത്തോളം പേർക്ക് രോഗം ഭേദമായി

രും കേരളത്തിൽ കൊവിഡ് മഹാമാരിയുടെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥ കഴിഞ്ഞുവെന്ന് കരുതുന്നതായി കൊവിഡ് പ്രതിരോധത്തിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിരുന്ന മുൻ ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോ

ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഗഡ്ഗരി ഇക്കാര്യം പറഞ്ഞത് സ്വയം പര്യാപ്ത ഭാരതമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നത്തെ കുറിച്ചും ആഗോള സാമ്പത്തിക രംഗത്ത് അതുവഴി നേടിയെടുക്കാവുന്ന നേട്ടത്തെ കുറിച്ചും ഗഡ്ഗരി സൂചിപ്പിച്ചു നിരവധി പരിമിത ചെറുകിട ഇടത്തര വ്യവസായങ്ങളെ ഇതിനായി പുനസംഘടിപ്പിച്ചു വരികയാണെന്നും ഗഡ്ഗരി പറഞ്ഞു

ചികിത്സയിൽ കഴിയുന്ന ഇർഷാദ് കുറ്റം സമ്മതിച്ചതായി പൊലീസ് പറഞ്ഞു ഇസഹാക്ക് ഹസ്സൻ ആഷിർ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ഔഫ് അബ്ദുൾ റഹ്മാന്റെ കൊലപാതകം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു കൊലപാതകത്തെ പറ്റ് ക്രൈബ്രാഞ്ച് അന്വേഷിക്കുമെന്നും അവർ പറഞ്ഞു രംഭ ചലച്ചിത്ര നാടക നടൻ അനിൽ നെടുമങ്ങാടിന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു ശ്രദ്ധേയ വേഷങ്ങളിലൂടെ സിനിമാ ലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു അനിൽ നെടുമങ്ങാടെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു കുറച്ചു ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച അനിൽ നെടുമങ്ങാട് പ്രതിഭയുടെ സൌന്ദര്യം പ്രസരിപ്പിച്ച നടനായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ചെറിയ കാലയളവിലാണെങ്കിലും മലയാള സിനിമയിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനായിരുന്നു അനിൽ നെടുമങ്ങാടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അനുസ്മരിച്ചു

കമ്മട്ടിപ്പാടം അയ്യപ്പനും കോശിയും തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ കൈകാര്യം ചെയ്തു

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും തീർത്ഥാടകർക്ക് ദർശനാനുമതി നൽകുന്നത്

രും മെൽബണിൽ ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് മൂന്ന് വിക്കറ്റ് നഷ്ടമായി

ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കായിരുന്നു വിജയം രും കേരള പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂരിൽ വിവിധ മേഖലകളിലെ വിദഗ്ധരുമായി കൂടിക്കാഴ്ച്ച നടത്തും രാവിലെ ഇ

മുഖ്യമന്ത്രി നാളെ വയനാട്ടിലെത്തും കൽപ്പറ്റ പുളിയാർമല കൃഷ്ണ ഗൌഡർ ഹാളിൽ വിവിധ മേഖലകളിലെ പ്രമുഖരുമായി അദ്ദേഹം ചർച്ച നടത്തും രംഭ ചിന്തയില്ലാതെ കുട്ടികൾക്ക് വളരാൻ ഭേദ സാഹചര്യമൊരുക്കുകയാണ് ശിശുക്ഷേമ സമിതി ബാലഭവൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കുഞ്ഞുങ്ങളെ സിലബസിൽ തളച്ചിടുന്ന രീതി ബാലഭവനിലില്ല

കണ്ണൂർ പുത്തൻകണ്ടത്ത് ബാലഭവൻ മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ രും സംസ്ഥാനത്തെ എല്ലാ തെരുവ് വിളക്കുകളും എൽഇഡി ആക്കുമെന്ന് മന്ത്രി ഡോ

രുര പാലക്കാട് തേൻകുറിശ്ശിയിൽ ഇന്നലെ വൈകീട്ട് യുവാവിനെ ഭാര്യാപിതാവും ബന്ധുവും ചേർന്ന് കൊലപ്പെടുത്തി

ബൈക്കിൽ പോവുകയായിരുന്ന യുവാവിനെ ഇരുമ്പു വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു സംഭവത്തോട് ബന്ധപ്പെട്ട് യുവാവിന്റെ ഭാര്യാ പിതാവിനെയും അമ്മാവനെയും കസ്റ്റഡിയിൽ എടുത്തു മൂന്നുമാസം മുൻപായിരുന്നു അനീഷിന്റെ പ്രണയവിവാഹം

മുടവൻമുകൾ വാർഡിലെ കൌൺസിലറായ ആര്യ ഓൾ സെയിന്റ്സ് കോളജിലെ ബിരുദ വിദ്യാർത്ഥിനിയാണ് എസ്എഫ്ഐ സംസ്ഥാന കമ്മറ്റി അംഗമായ ആര്യ മേയർ സ്ഥാനത്തെത്തിയാൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി മാറും രുഭ രക്ത സമ്മർദത്തിലെ വ്യതിയാനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടൻ രജനീകാന്തിന്റെ ആരോഗ്യ നില തൃപ്തികരമായി തുടരുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പറ്റി ആശങ്കപ്പെടാനില്ലെന്ന് ഹൈദരാബാദിലെ അപ്പോളോ ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു

രുഭ കണ്ണൂർ മയ്യിലിനടുത്ത് ഇരുവാപുഴയിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് പ്ലസ് ടു വിദ്യാർഥി മരിച്ചു